പ്രവർത്തനങ്ങൾ കേന്ദ്രമ്പ്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്യും ശബരിമലയിൽ സ്ുർക്ഷ് ഒരുക്കേണ്ടത് ഗവൺമെന്റിന്റെ ന് വിവേചനാധികാരമെന്ന് ഹൈക്കോടതി

ചെയിൻ സർവ്വീസിനായി കെ എസ് ആർ ടി

സംസ്ഥാന വ്യാപകമായി ബി ജെ പി യുടെ പ്രതിഷേധ സമരം സംസ്ഥാന അധ്യക്ഷൻ പി

ശ്രീധരൻപിള്ള ഡി ജി

തിരുവനന്തപൂരത്ത് ടീമുകൾ അൽപസമയത്തിനകം എത്തും ഡ്രൈഡോക്ക് രാജ്യത്തെ ഏറ്റവും വലിയ ഡ്രൈഡോക്കിന്റെ നിർമാണ പ്രവർത്തനങ്ങൾക്ക് കൊച്ചിയിൽ ഇന്ന് തുടക്കമാവും കൊച്ചി കപ്പൽശാലയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് ഡ്രൈഡോക്കിന്റെ ശിലാസ്ഥാപനം നിർവ്വഹിക്കും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്കായി കൊച്ചി കപ്പൽശാല നിർമ്മിക്കുന്ന രണ്ടു യാത്രാകപ്പലുകളുടെ നിർമാണോദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവ്വഹിക്കും

തലശ്ശേരി മാഹി ബൈപാസ് കാസർകോട് ജില്ലയിലെ നീലേശൂരം പള്ളിക്കര റെയിൽവേ മേൽപ്പാലം പാലക്കാട് ജില്ലയിലെ ന്യാട്ടുകാൽ താണാവ് റോഡ് എന്നിവയുടെ നിർമാണ പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് തുടക്കമാവുന്നത്

ശബരിമലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണങ്ങളെപ്പറ്റി ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കവേയാണ് ഹൈക്കോടതി ഇക്കാര്യം പറഞ്ഞത് ഇക്കാര്യത്തിൽ ഇടപെടാനാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചു

സി ശബരിമല ശബരിമല തീർഥാടന കാലത്ത് പമ്പ നിലക്കൽ പാതയിൽ ചെയിൻ സർവ്വീസ് നടത്തുന്നതിനായി കെ എസ് ആർ ടി

ബേസ് ക്യാമ്പായ നിലക്കലിൽ നിന്നും കെ എസ് ആർ ടി സി ബസുകൾ മാത്രമേ പമ്പയിലേക്ക് കടത്തിവിടുകയുള്ളൂ

പി മാർച്ച് അയ്യപ്പ ഭക്തരെ കള്ളക്കേസിൽ കൂടുക്കി ജയിലിലടയ്ക്കുന്നുവെന്ന് ആരോപിച്ച് ബി ജെ

തിരുവനന്തപുരത്ത് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പി

ശ്രീധരൻപിള്ള ഡി

വ്രൈകിട്ട് അഞ്ചുവരെയാണ് സമരം

രാജഗോപാൽ എം

ശബരിമലയെ കലാപ ഭൂമിയാക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചിയിൽ എൽ

എഫിന്റെ ജനകീയ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിശ്വാസികൾക്ക് ആശങ്ക വേണ്ടെന്നും അവർക്ക് എല്ലാ സുരക്ഷയും ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോഴത്തെ ഗവൺമെന്റ് ശബരിമലയ്ക്കുവേണ്ടി ചെലവഴിച്ച തുക മറ്റൊരു ഗവൺമെന്റും നൽകാത്തതാണ് ഇതു സംബന്ധിച്ച കണക്കുകൾ ആർക്കും പരിശോധിക്കാവുന്നതാണെന്നും ശ്രീ

കാനം രാജേന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു

ഇപ്പോൾ പമ്പശബ്രിമല പാതയിൽ സംഘം സന്ദർശനം നടത്തുകയാണ് ഇന്നലെ പൃത്തനംതിട്ട മുതൽ പമ്പ വരെയായിരുന്നു സുരക്ഷാ പരിശോധന യാത്രി

സുധാകരൻ ഗ്രാമങ്ങളുടെ വികസനത്തിന് വലിയ പ്രാധാന്യമാണ് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്നതെന്ന് മന്ത്രി ജി സുധാകരൻ പുനരുദ്ധാരണം നടത്തുന്ന കണ്ണൂർ ജില്ലയിലെ വടുവംകുളം ബങ്കണപറമ്പ് റോഡിന്റെ നിർമാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

അന്തർദേശീയ നിലവാരത്തിലുള്ള റോഡുകളും പാല ങ്ങളും നിർമ്മിക്കാൻ അന്തർദേശീയ നിലവാരത്തിലുള്ള കരാ റുകാർ വരണം ഐക്യരാഷ്ട്രസഭയും ലോകബാങ്കും സാങ്കേതിക വി ദ്യ നൽകി സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു

തിരുവനന്തപുരത്തെ ഭവന സമുച്ചയമായ പ്രതീക്ഷയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവ്വഹിക്കും ഗുണഭോക്താക്കൾക്ക് താക്കോൽ ദാനം മുഖ്യമന്ത്രി നിർവ്വഹിക്കും

നവംബർ ആദ്യവാരം ജില്ലയിലെ ഡാമുകളിൽ നിന്ന് കനാലുകൾ വഴിയുള്ള ജലസേചനം ആരംഭിക്കും കൂടുതൽ വിവരങ്ങളുമായി ഫാല്ക്ക്ാടുനിന്ന് ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്

വ്യാഴാഴ്ചയാണ് ആയില്യ ഉൽസവം അന്ന് ജില്ലയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു

ടി എം തൃശൂർ ചാവക്കാട് എ ടി

അഞ്ചങ്ങാടിയിലെ എസ്

ഐ എ ടി

ടി

പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് സൂചന്

അതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ ചാവക്കാട്ട് നിന്നും പോലീസ് കസ്റ്റഡിയിൽ എടുത്തു

ഐ എ ടി

നാളെ മുതൽ ഇത് പ്രാബല്യത്തിൽ വരും

ക്രിക്കറ്റ് ഇൻഡ്രോ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ മറ്റെന്നാൾ നടക്കുന്ന ഇന്ത്യ വെസ്റ്റിന്റീസ് ഏകദിന പരമ്പരയുടെ നിർണായക മത്സരത്തിനായി ടീമുകൾ ഇന്ന് തിരുവനന്തപുരത്തെത്തും ടിക്കറ്റ് വിൽപന തുടരുകയാണ് പേ ടി എം ഇൻസൈഡർ എന്നീ സൈറ്റുകൾ വഴിയും അക്ഷയ ഇ കേന്ദ്രങ്ങൾ വഴിയും ടിക്കറ്റ് ലഭിക്കും

തിരുവനന്തപുരത്തെ മത്സരത്തിലൂടെ പരമ്പരയിൽ സമനിലയെങ്കിലും പിടിക്കാമെന്ന പ്രതീക്ഷയുമായാണ് സന്ദർശകരുടെ വരവ്

മൊബൈൽ ഫോൺ അല്ലാതെ മറ്റൊന്നും സ്റ്റേഡിയത്തിനകത്ത് കൊണ്ടുപോകാൻ അനുവാദമില്ല

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജയരാജൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കാവ്ശ്യമാ്യ മുഴുവൻ യൂണിഫോമും ഖാദി മേഖലയിൽ ഉത്പാദിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് മഗ്രൂി ഇ്

കാസർഗോഡ് ഉദുമ ടെക്സ്റ്റൈയിൽ മിൽ ഉദ്ദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

മന്ത്രി രാമചന്ദ്രൻ കടപ്പള്ളി ചെയർമാനും ഡിപിഐ കെ

മോഹൻ കുമാർ ജനറൽ കോ ഓർഡിനേറ്ററുമായ സമിതിയിൽ എ

ഐ ജിമ്മി കെ ജോസ് ജനറൽ കൺവീനറാണ്